വളരെ ഗൌരവമേറിയ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മുഖ്യമന്ത്രി ത രാജ്യത്ത് കോവിഡിന്റെ മൂന്നാം തരംഗം ഉണ്ടാകുമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഡോ

ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപൊലീത്തയുടെ കബറടക്കം വൈകീട്ട് തിരുവല്ലയിൽ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ശക്തമായി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വളരെ ഗൌരവമേറിയ അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വോയ്സ് വാർഡ്തല സമിതികളിലും റാപിഡ് റെസ്പോൺസ് ടീമിലും ഓരോ പ്രദേശത്തെയും മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന റിട്ടേണിംഗ് ഓഫീസർമാർക്ക് പുറമെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരേയും ഇതിൽ ഉൾപ്പെടുത്തും ലോഡ്ജ് ഹോസ്റ്റലുകൾ എന്നിവ സി എഫ് എൽ

കെഎസ്ഇബി വാട്ടർ അതോറിറ്റി കുടിശ്ശികകൾ പിരിക്കുന്നത് രണ്ട് മാസത്തേക്ക് നിർത്തി വെക്കുമെന്നും ബാങ്ക് റിക്കവറികൾ നീട്ടി വെയ്ക്കാൻ ബാങ്കുകളോട് അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാമത്തെ ഡോസ് വാക്സിൻ മൂന്ന് മാസം കഴിഞ്ഞ് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പുതിയ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്

പൊലീസിന്റെ ടെലിമെഡിസിൻ ആപ്പ് ആയ ബ്ലൂ ടെലി മെഡിസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കും ആശുപത്രിയിൽ പോകാതെ തന്നെ വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ സേവനം ആപ്പ് മുഖേന ലഭിക്കും കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരും മറ്റ് അസുഖങ്ങൾ ഇല്ലാത്തവരും വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയെന്നും കോവിഡ് ഉണ്ട് എന്നത് കൊണ്ട് മാത്രം എല്ലാവരും ആശുപത്രിയിൽ എത്തണമെന്നില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ റമദാൻ കാലം കഴിഞ്ഞു പോയതെന്നും എല്ലാവരും മികച്ച ജാഗ്രത കാണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തവണ സ്ഥിതി കൂടുതൽ ഗുരുതരമായതിനാൽ മുൻകാലങ്ങളിലേതിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

സാധാരണ തരത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനായി ഈ സേവനം ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

വൈറസിന് വീണ്ടും ജനിതകമാറ്റം സംഭവിച്ച് കൂടുതൽ വ്യാപനശേഷി കൈവരാമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു നിലവിലെ വാക്സീനുകൾ വൈറസുകളെ നേരിടാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു രുര കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തിലധികം രോഗികളുണ്ടെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിലെ വ്യാപനം അതിതീവ്രമെന്നാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ

ദേദ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രിയിലും കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ ഡോ നവ്ജ്യോത് ഖോസ അറിയിച്ചു

കോവിഡ് ഇതര രോഗികൾക്ക് ഇനി ജനറൽ ആശുപത്രിയിൽ ഒ

മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ട്രാൻസിറ്റ് വാർഡിൽ ഇന്നു മുതൽ പുതിയ സെമി ഐ

യു വാർഡ് സജ്ജമാക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ദേദ ജനിതക വ്യതിയാനം വന്ന കോവിഡ് വൈറസ് കാരണം രോഗവ്യാപനം കൂടിവരുന്ന സാഹചര്യത്തിൽ പനിയോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഉള്ളവർ സ്രവ പരിശോധന നടത്തണം എന്ന് കൊല്ലം ഡി

രോഗബാധിതരുമായി സമ്പർക്കം ഉണ്ടായവർ കർശനമായി നിരീക്ഷണത്തിൽ കഴിയണം എട്ടാം ദിവസം പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമേ പുറത്തിറങ്ങാവുവെന്നും ഡി

ദ്ദേ കോവിഡ് രണ്ടാംതരംഗം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കി

സ്വകാര്യ ആശുപത്രി പ്രതിനിധികളിലെ ചികിത്സാ സൌകര്യങ്ങൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് അദ്ദേഹം ഈ നിർദ്ദേശം നൽകിയത് ഏതെങ്കിലും കാരണവശാൽ ചികിത്സ നൽകാൻ സാധിച്ചില്ലെങ്കിൽ മറ്റ് ആശുപത്രികളിൽ ബന്ധപ്പെട്ട് ചികിത്സ ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം ഓരോ ആശുപത്രിക്കുമുണ്ടെന്നും ചികിത്സ നിഷേധിക്കുന്ന ആശുപത്രി അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു ദ്ദേ കോവിഡ് രോഗ വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ നാല് പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളും കണ്ടെയിൻമെന്റ് സോണാക്കി ആര്യാട് കരുവാറ്റ ചെറുതന പട്ടണക്കാട് പഞ്ചായത്തുകളിലെ വാർഡുകളാണ് കണ്ടെയിൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് രും കോവിഡ് വ്യാപനം രണ്ടാമതും രൂക്ഷമാകുന്നതിന്റെ സാഹചര്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒ

കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിയ ബ്ലോക്കാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് ദ്ദേ ഇടുക്കി ജില്ലയിൽ കോവിഡ് രോഗം വർദ്ധിച്ചു വരുന്നതിനാൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കലക്ടർ എച്ച്

രുഭ വയനാട് ജില്ലയിൽ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് നിലവിൽ ക്ഷാമമില്ലെന്ന് ഡി

ഒ അറിയിച്ചു

ദേദ സംസ്ഥാനത്ത് രണ്ടാം പിണറായി ഗവൺമെന്റ് രൂപീകരണത്തിന് ചർച്ചകളും കൂടിയാലോചനകളും സജീവം ഗവൺമെന്റിന്റെ ഘടന സംബന്ധിച്ച് എൽഡിഎഫ് ഘടക കക്ഷികൾ തമ്മിൽ ഇന്ന് ചർച്ച ആരംഭിക്കും

രുര കാലം ചെയ്ത മലങ്കര മാർത്തോമാ സുറിയാനി സഭാ പരമാധ്യക്ഷൻ ഡോ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലീത്തയുടെ കബറടക്കം വൈകീട്ട് തിരുവല്ലയിൽ സെന്റ് തോമസ് മാർത്തോമാ പള്ളിക്കു സമീപത്തെ ബിഷപ്പുമാരുടെ പ്രത്യേക സെമിത്തേരിയിലാണ് കബറടക്കം സഭ അധ്യക്ഷൻ ഡോ തിയഡോഷ്യസ് മാർത്തോമാ മെത്രോപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വവും മറ്റ് ബിഷപ്പുമാർ സഹ കാർമ്മികത്വവും വഹിക്കും

അലക്സാണ്ടർ മാർത്തോമാ ഓഡിറ്റോറിയത്തിൽ ശുശ്രുഷയുടെ മൂന്നാം ഭാഗവും വൈകിട്ട് മൂന്ന് മണിക്ക് ശുശ്രുഷയുടെ നാലാം ഭാഗവും ആരംഭിക്കും തുടർന്ന് കബറടക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും കബറടക്കം ദ്ദേ ജമ്മു കശ്മീരിലെ കർഗിലിൽ മഞ്ഞിടിച്ചിലിൽ മരിച്ച സൈനികൻ വയനാട് പൊഴുതന സ്വദേശി സി

ഷിജിയുടെ മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലെത്തിക്കും സംസ്കാരം നാളെ തറവാട് വീടായ കറുവന്തോട് പണിക്കശ്ശേരി വീട്ടു വളപ്പിൽ നടക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച്ചയായിരുന്നു അപകടം ദ്ദേ ഇന്ധന വില വീണ്ടും വർധിച്ചു

തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇന്ധന വില വർധിക്കുന്നത്

നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു യോഗം ചേരുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന ജില്ലാ കലക്ടർമാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം

ദ്ദേ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ തടസരഹിത ഓക്സിജൻ വിതരണത്തിനാവശ്യമായ നടപടി ക്രമങ്ങൾ ഏകോപിപ്പിക്കാൻ കൊല്ലം ജില്ലയിൽ വാർ റൂം പ്രവർത്തന സജ്ജമായി വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ മൂന്ന് ഷിഫ്റ്റുകളായാണ് വാർ റൂം പ്രവർത്തിക്കുക

ദേഴ കോവിഡ് മഹാമാരി കണക്കിലെടുത്ത് താൽക്കാലിക പെൻഷൻ നൽകുന്നത് വിരമിച്ച തീയതി മുതൽ ഒരു വർഷം വരെ നീട്ടാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോ